മേഖലയിലെ സ്ഥിതി ഏകപക്ഷീയമായി മാറ്റാൻ ചൈന ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായതെന്ന് വിദേശകാര്യ മന്ത്രാലയം

പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനങ്ങളുടേയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടേയും അഭിപ്രായങ്ങളും അനുഭവങ്ങളും കോവിഡ് മഹാമാരിക്കെതിരായ പോരാട്ടത്തിൽ ഭാവിയിൽ സ്വീകരിക്കേണ്ട തന്തങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രിമാർക്ക് പ്രധാനമന്ത്രി ഉറപ്പു നൽകി കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിമാരുമായി രണ്ടു ദിവസങ്ങളിലായി വീഡിയോ കോൺഫറൻസിങ് വഴി പ്രധാനമന്ത്രി നടത്തുന്ന കൂടിക്കാഴ്ചയുടെ ആദ്യദിനം സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി

യഥാസമയം തീരുമാനം എടുത്തതും നേരത്തെ നടത്തിയ തയാറെടുപ്പുകളും ഒട്ടേറെ ജീവനുകൾ രക്ഷിക്കാൻ രാജ്യത്തിന് സഹായകരമായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കോവിഡിനെതിരായ രാജ്യത്തിന്റെ പോരാട്ടം ഭാവിയിൽ വിലയിരുത്തപ്പെടുമ്പോൾ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒത്തുചേർന്ന് ഈ മഹാമാരിക്കെതിരെ എങ്ങനെ പ്രവർത്തിച്ചു എന്നത് ഓർമ്മിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

അൺലോക്ക് കാലത്തും സുരക്ഷയിൽ കുറവു വരുത്തരുതെന്നും മാസ്ക് ധരിക്കുന്നതും കൈകൾ ശുചിയാക്കുന്നതും അകലം പാലിക്കുന്നതും ഉൾപ്പെടെ മുൻകരുതൽ നടപടികൾ കർശനമായി പാലിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

നേരത്തെ കേണൽ ഉൾപ്പെടെ മൂന്നു സൈനികർ വീരമൃത്യു വരിച്ചതായി സൈനിക കേന്ദ്രങ്ങൾ അറിയിച്ചിരുന്നു രാജ്യത്തിന്റെ ഭൂപ്രകൃതിയും പരമാധികാരവും സംരക്ഷിക്കാൻ പ്രതിബദ്ധമാണെന്നും സൈന്യം വ്യക്തമാക്കി തിങ്കളാഴ്ച രാത്രി സംഘർഷമുണ്ടായ ഗാൽവാൻ താഴ് വരയിൽ നിന്നും ഇന്ത്യയുടെയും ചൈനയുടേയും സൈന്യം പിൻമാറിയതായും സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചു രുമ കിഴക്കൻ ലഡാക്കിലെ സ്ഥിതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിങ്ങുമായും ആഭ്യന്തര മന്ത്രി അമിത്ഷായുമായും ചേർന്ന ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി

രുമ ഇന്ത്യയും ചൈനയും തമ്മിൽ ചർച്ചയിലൂടെ സമാധാന നീക്കങ്ങൾ സുഗമമായി മുന്നോട്ടു കൊണ്ടുപോകുന്നതിനിടയിൽ ഗൽവാൻ മേഖലയിലെ സ്ഥിതിയിൽ ഏകപക്ഷീയ മാറ്റങ്ങൾ വരുത്താൻ ചൈനയുടെ ഭാഗത്തുണ്ടായ ശ്രമമാണ് സംഘർഷത്തിന് കാരണമായതെന്നും വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു ഇരുഭാഗത്തും ആളപായങ്ങൾ ഉണ്ടായതായി നേരത്തെ അംഗീകരിച്ച ഉന്നതതല ഉടമ്പടി ചൈന അക്ഷരംപ്രതി പാലിച്ചിരുന്നുവെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നുവെന്നും മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ പറഞ്ഞു അതിർത്തിയിലെ എല്ലാ പ്രവർത്തനങ്ങളും സ്വന്തം ഭൂപ്രദേശത്താണ് ഇന്ത്യ നടത്തുന്നത് ചൈനയും അതുപോലെ നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു രുമ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ അതിർത്തികൾ മാറ്റമില്ലാതെ തുടരുമെന്ന് ബി

പി ദേശീയ അധ്യക്ഷൻ ജെ

ഏതു സാഹചര്യവും നേരിടാൻ ഇന്ത്യൻ സൈന്യം സുസജ്ജമാണെന്ന് നദ്ദ പറഞ്ഞു നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കേരളത്തിൽ ബി

പി സംഘടിപ്പിച്ച മഹാവെർച്വൽ റാലിയെ വീഡിയോ കോൺഫറൻസിങ് വഴി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ ചൈന സംഘർഷത്തിൽ വീരമൃത്യുവരിച്ച നമ്മുടെ സൈനികർക്ക് അദ്ദേഹം ആദരാഞ്ജലി അർപ്പിച്ചു

ധീര ജവാൻമാരുടേയും ഓഫീസറുടേയും വീരമൃത്യു വേദനിപ്പിക്കുന്നതും ഏറെ ദുഃഖകരവുമാണെന്ന് അവർ ന്യൂഡൽഹിയിൽ പറഞ്ഞു രുദ ഇന്ത്യ ചൈന സംഘർഷത്തിൽ വീരമൃത്യു വരിച്ച ജവാൻ കെ

വിശദാംശങ്ങളുമായി ആകാശവാണി കൊച്ചി ലേഖകൻ എൻ സി ജയചന്ദ്രൻ

ഒ ശശിധരൻ

ജില്ലയിൽ അഞ്ചു പേർ രോഗ മുക്തി നേടി രുമ തൃശൂർ ജില്ലയിൽ ആറ് പുരുഷൻമാരും ഒരു സ്ത്രീയുമുൾപ്പെടെ ഇന്നലെ രോഗം സ്ഥിരീകരിച്ച എല്ലാവരും വിദേശത്ത് നിന്നും ഇതരസംസ്ഥാനങ്ങളിൽ നിന്നുമായി തിരിച്ചെത്തിയവരാണ്

ദേദ പാലക്കാട് ജില്ലയിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ച ആറ് പേരിൽ ഒരാൾക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് രണ്ടു പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മൂന്നു പേർ വിദേശത്തുനിന്നും വന്നവരാണ്

ദേദ കോഴിക്കോട് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ച നാലു പേരിൽ ഒരാൾ ഒമാനിൽ നിന്നും രണ്ട് പേർ മുംബൈയിൽ നിന്നും ഒരാൾ ഒഡീഷയിൽ നിന്നും വന്നവരാണ്

പത്തനംതിട്ടയിൽ രോഗം സ്ഥിരീകരിച്ച് കോട്ടയം മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കോന്നി സ്വദേശിയും കോവിഡ് മുക്തനായി ജില്ലയിൽ പത്തനംതിട്ട സ്വദേശിനി ഉൾപ്പെടെ നാലു പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് രുമ വയനാട് ജില്ലയിൽ അഞ്ചു പേർ കോവിഡ് രോഗമുക്തരായി

ആഗസ്തിലും തെരഞ്ഞെടുപ്പിന് മുമ്പും വോട്ടർപട്ടിക വീണ്ടും പുതുക്കും

പെട്രോളിന് ആറ് രൂപ മൂന്ന് പൈസയും ഡീസലിന് ആറ് രൂപ എട്ട് പൈസയുമാണ് കൂടിയത് രുര കോവിഡിന്റെ മറവിൽ വൈദ്യുതിബിൽ കുത്തനെ വർധിപ്പിച്ചതിനെതിരെ യു ഡി

കോവിഡ് ഭീതിയിൽ പകച്ചു നിൽക്കുന്ന ജനങ്ങളെ കനത്ത ബില്ല് നൽകി ദ്രോഹിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റും വൈദ്യുതി ബോർഡും ചെയ്യുന്നതെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു

ജെ

ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് എയർ ഇന്ത്യ വിമാനം ഉച്ചയ്ക്ക് രണ്ടിനാണ് കൊച്ചിയിലെത്തുക

രുമ സംസ്ഥാന ഗവൺമെന്റിന് ചാർട്ടേർഡ് ഫ്ളൈറ്റിൽ വരുന്നവർ കോവിഡ് ടെസ്റ്റ് നടത്തണമെന്നത് നിർബന്ധമാണെങ്കിൽ നോർക്കയെ ടെസ്റ്റ് നടത്താൻ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് എം

ദേശ കണ്ണൂർ ജില്ലയിലെ ചില പഞ്ചായത്തുകളിൽ ഡെങ്കിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ